പിപിധ വശങ്ങൾ പഠിക്കാൻ പ്രപ്രധാനമന്ത്രി നരേന്ദ്രമോദി സമിതി രൂപീകരിക്കും

സംവിധാനം പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ

ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ന്യൂസിലന്റിന് വിജയം ഇന്ന് ഓസ്ട്രേലിയ ബംഗ്ലാദേശിനെ നേരിടും

പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ് അദ്ദേഹം സംയുക്ത സഭയെ അഭിസംബോധന ചെയ്യുന്നത്

പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു രാഷ്ട്രപതിയുടെ അഭിസംബോധന്റയ്ക്കുശേഷം രാജ്യസഭാ നടപടികൾ ഇന്ന് ആരംഭിക്കുട്ടു

വിശദാംശങ്ങളുമായി നന്ദകുമാർ

യോഗത്തിൽ പങ്കെടുത്ത മിക്ക രാഷ്ട്രീയ കക്ഷികളും ഈ ആശയത്തെ അംഗീകരിച്ചുവെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു എങ്കിലും സി

ഐ തുടങ്ങിയ പാർട്ടികൾക്ക് വിഷയത്തിൽ വൃത്യസ്ത അഭിപ്രായമാണുള്ളതെന്നും എന്നാൽ ആശയത്തെ എതിർത്തില്ലെന്നും അദ്ദേഹം അറിയിച്ചു

കെ ഉൾപ്പെടെ മൂന്ന് രൂഷ്ട്രീയ പാർട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുകയും ചെയ്തു ലോക്ജനശക്തി പാർട്ടിയിൽ നിന്നും രാംവിലാസ് പൂർസ്വാൻ എൻ സി പി യുടെ ശരത്പവാർ സി

ഐഎംൂൽ നിന്നും സീതാറാം യെച്ചൂരി സി

ഐ യിൽ നിന്നും ഡീ രാജ ജെ

ജെ ഡി നേതാവ് നവീൻ പട്നായിക് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് എസ് പി ബി

പി ഡി എം കെ ടി ഡി പി ആം ആത്മി പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തില്ല

പ്രധാന ചടങ്ങുകൾ നടക്കുന്ന റാഞ്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിൽ യോഗാദിനം ആഘോഷിക്കും

യോഗാസ്ഥാപനങ്ങൾക്കും യോഗാ ഗുരുക്കൾക്കും പുറമേ വിവിധ സംസ്ഥാനങ്ങളിലെ വിശിഷ്ട വ്യക്തികൾ റാഞ്ചിയിലെ യോഗാ വേദിയിൽ പങ്കെടുക്കും

വെങ്കയ്യ നായിഡുവിനെ സന്ദർശിച്ച് തന്റെ മന്ത്രി സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടെ രാജ്യത്ത് നടപ്പിലാക്കിവരുന്ന വിവിധ പ്രതിരോധ പദ്ധതികളുടെ പുരോഗതിയെക്കുറിച്ചും കേന്ദ്രമന്ത്രി ഉപരാഷ്ട്രപതിയെ അറിയിച്ചു ആന്ധ്രാപ്രദേശിലെ പ്രതിരോധ പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിനായി പ്രത്യേക താത്പര്യം എടുക്കണമെന്ന് ശ്രീ നായിഡു കേന്ദ്ര മന്ത്രിയോട് ഉപദേശിച്ചതായി ഔദ്യോഗിക കുറിപ്പിൽ പറയുന്നു പദ്ധതി നിർവ്വഹണത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് നീക്കണമെന്നും ശ്രീ നായിഡു ആവശ്യപ്പെട്ടു കൃഷ്ണ ജില്ലയിലെ നിമ്മകുറുവിലുളള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ അത്യാധുനിക രാത്രിക്കാലക്കാഴ്ച ഉപകരണങ്ങളുടെ ഫാക്ടറി ഉൾപ്പെടെയുളള പദ്ധതികളെക്കുറിച്ചും ഇരുവരും ചർച്ചനടത്തി

പി കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ കാഴ്ചപ്പാടുകളും വസ്തുതകളുട് എന്താണെന്ന് വൃക്തമാക്കുന്ന കുറിപ്പ് പ്രധാനമന്ത്രിയുടെ ്രസാമ്പത്തിക ഉപദേശക കൌൺസിൽ പുറത്തിറക്കി

ഡി

കമ്പനിയുടെ മുൻ ജോയിന്റ് എം ഡി അരുൺ കെ സാഹട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കിന്റെ എം ഡി കെ രാമചന്ദ് എന്നിവരെയാണ് കളളപ്പണം വെളുപ്പിക്കൽ നിരോധനനിയമ പ്രകാരം അറസ്റ്റ് ചെയ്തത് ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ആദ്യ അറസ്റ്റാണിത്

കിരാന കടയുടമകൾ കച്ചുവടക്കാർ ചില്ലറ വ്യാപാരികൾ എന്നിവരുടെ സംഘടനാ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു

ചെറുകിട കടയുടമകൾ വ്യാപാരികൾ ചില്ലറ വ്യാപാരികൾ എന്നിവർക്ക് ഇ കോമേഴ്സിലൂടെ ലഭിക്കാവുന്ന സാധ്യതകളും അദ്ദേഹം ചർച്ച ചെയ്തു

വിദേശ കമ്പനികളുടെ വിവിധ ബ്രാന്റുകളുടെ ചില്ലറ വ്യാപാരം ഇന്ത്യയിൽ അനുവദിക്കില്ല എന്ന് ശ്രീ

വ്യാപാര വളർച്ചയെക്കൂടാതെ വ്യവസായ സ്ഥാപനങ്ങളുടെ പുരോഗതിക്കും മികച്ചു ഗുണനിലവാരമുള്ള ഉത്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും ഇതുവഴി സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര വ്യാപാര വ്യവസായ സഹമന്ത്രിമാരായ ഹർദീപ് സിങ്ങ് പുരിയും സോം പ്രകാശും ചർച്ചയിൽ പങ്കെടുത്തു

മസ്തിഷ്ക ജ്രം പ്രതിരോധിക്കാനായി മുതിർന്ന ശിശുരോഗ വിദഗ്ധരരുടെ അഞ്ച് കേന്ദ്ര സംഘങ്ങളും എത്തിച്ചേർന്നതായി ശ്രീകൃഷ്ണ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോ

ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവില്ലെന്നും കൂട്ടികളുടെ ചികിത്സയ്ക്കായി എല്ലാ സംവിധാനങ്ങളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ജയശങ്കർ ഇന്ത്യ സന്ദർശിക്കുന്ന റഷ്യൻ ഉപ പ്രധാനമന്ത്രി യൂറി ട്രുറ്റ്നേവുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉൌട്ടി ഉറപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു ഈ വർഷം സെപ്തംബറിൽ കിഴക്കൻ സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കുന്നതിനായി വ്ളാഡിവോസ്റ്റോക്കിലേയ്ക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഉൾപ്പെടെ ഇന്ത്യ റഷ്യ ബന്ധത്തെ സംബന്ധിക്കുന്ന വിവിധ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു

കടൽക്കൊളള സായുധകൊളള എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ശിൽപശാല ചർച്ച ചെയ്യുന്നത് ഇരുപത് രാജ്യങ്ങൾ ഉൾക്കൊളളുന്ന റീ ക്യാപ് എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച കടൽക്കൊളളയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രോസിക്യൂഷൻ ഫോറൻസിക് പ്രക്രിയകൾ ഉയർന്നൂവരുന്ന ഭീഷണികൾ നേരിടൽ എന്നിവയൂം ചർച്ച വിഷയമായി തീരസംരക്ഷണ സേന അഡീഷണൽഡയറക്ടർജനറൽ വി

ആർ മൂർത്തിയും റീക്യാപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മസഭുമി കുറോക്കിയും ചേർന്നാണ് ശിൽപ്പശാല ഉദ്ഘാടനം ചെയ്തത്

എൽ എ മാർ ഇന്നലെ സത്യ പ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ ശ്രീ ബിമൻ ബന്ധോപാധ്യായ് എം എൽ

ഒരു എം

എ മരണപ്പെടുകയും മറ്റുളളവർ രാജിവെച്ചതീരുനയും തുടർന്നാണ് ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപ്പത്തെർഞ്ഞെടുപ്പ് വേണ്ടി വന്നത്

ഖഷോഗി വധക്കേസിൽ മനുഷ്യാവകാശങ്ങളിൽ ഊന്നിയുള്ള സ്വതന്ത്ര അന്വേഷണം നടത്താനാണ് ആഗ്നസ് കലാമാർഡ് നേതൃത്വം നൽകുന്ന സംഘത്തെ നിയോഗിച്ചത് ആറു മാസത്തെ അന്വേഷണത്തിനു ശേഷം ഇന്നലെയാണ് സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത്

കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് കൊലപാതകം നടത്തിയതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു

എന്നാൽ സുനാമി മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടില്ല ആളപായമില്ല

ബെലഹെദേ ഗ്രാമത്തിൽ ഇന്നലെ രാത്രി തീവ്രവാദികൾ പ്രദേശവാസികൾക്കുനേരെ ആക്രമണം നടത്തിയതായി പ്രതിരോധമന്ത്രി ചെറീഫ് സീ അറിയിച്ചു തീവ്രവാദികളെ പിടികൂടുന്നതിനായി ശക്തമായ സൈനിക നീക്കമാണ് നടത്തുന്നതെന്നും അദ്ദേഹം അറിയിച്ചു

സി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്നലെ ബിർമ്മിൻഗാമിൽ നടന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ന്യൂസിലന്റിന് നാല് വിക്കറ്റ് വിജയം